പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം

പ്രധാനമായ ദശാബ്ദത്തിലെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിതരണം ചെയ്യും

ഐ

എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഗോവ എഫ് സി പോരാട്ടം

റിപ്തബ്ലിക് ദിനത്തിൽ കർഷക പ്രക്ഷോഭത്തെ തുടർന്നൂണ്ട്രായ് സംഭവവികാസങ്ങളും ദേശീയ പതാകയെ അപമാനിച്ച സ്റ്റ്ഭവ്വും നിർഭാഗ്യകരമാണെന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രപ്പസംഗത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ പുതിയതായി ക്കീടുണ്ടു് വന്ന കാർഷിക നിയമങ്ങൾ രാജ്യത്തെ കർഷകരെ പ്രാശർക്തീകരിക്കുന്നതാണ്

കോവിഡ് മഹാമാരിയെയും പ്രകൃതി ദുരന്തങ്ങളെയും ഇന്ത്യ ധീരമായി നേരിട്ടതായും കേന്ദ്ര സർക്കാർ സമയോചിതമായ തീരുമാനങ്ങളിലൂടെ നിരവധി ജീവൻ രക്ഷിച്ചതായും അദ്ദേഹം പറഞ്ഞു ആത്മനിർഭർ ഭാരതിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

രാജ്യ താത്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്രസർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രപതിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചു കാർഷിക നിയമങ്ങളോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ബഹിഷ്കരണം

കോവിഡ് സാഹചരൃങ്ങൾ പരിഗണിച്ച് രണ്ട് ഘട്ടങ്ങളായാണ് ബജറ്റ് സമ്മേളനം നടക്കുക

പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ധനമന്ത്രി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച അഞ്ചോളം സാമ്പത്തിക പാക്കേജുകൾ ഒരുതരത്തിൽ അഞ്ച് ചെറുബജറ്റുകളായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതുകൊണ്ടുതന്നെ ഇക്കൊല്ലത്തെ ബജറ്റ് ആ ചെറുബജറ്റുകളുടെ തുടർച്ചയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ദശാബ്ദം പൂർണ്ണമായും ഫലവത്തായി ഈ ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആർക്കും തന്നെ വാക്സിൻ കൊണ്ടുള്ള പാർശ്വഫലങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗൃമന്ത്രി കെ

അതേസമയം കോവിഡ് സ്ഥിരീകരണ നിരക്ക് വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണ നടപടികൾ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ഇന്ത്യൻ സംഗീത പരിപാടിയാണ് ഇത്തവണത്തെ ആകർഷണം

പരിക്കേറ്റ പൊലീസുകാർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ പൊലീസ് കാട്ടിയ ധീരതയിൽ രാഷ്ട്രം അഭിമാനിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു

എന്നാൽ ചരക്ക് വിമാനങ്ങൾക്കും പ്രത്യേക വിമാന സർവ്വീസുകൾക്കും ബാധകമാവില്ല നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുത്ത വ്യോമപാതകളിൽ ആവശ്യങ്ങൾക്ക് അനുസൃതമായി സർവ്വീസ് അനുവദിക്കുമെന്നും ഡി ജി

അറിയിച്ചു

ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷാ തീയതി അടുത്തമാസം രണ്ടിന് പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക്

ബി എസ് ഇ സഹോദയ സ്കൂളുകളിലെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ആശയ വിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം

ഡാനിയേൽ പുരസ്കാരം സംവിധായകൻ ഹരിഹരൻ ഏറ്റുവാങ്ങും

മുൻ കേന്ദ്ര സെക്രട്ടറി അധ്യക്ഷനായ കമ്മീഷനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്

എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറെസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പ്രചാരണത്തിൽ ആഗോള തലത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ഇന്ത്യയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു

മേഖലയിലെ കൊറോണ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ച ഇരുവരും ഇന്തൃ യു എ

ലോക സാമ്പത്തിക ഫോറത്തിന്റെ ദാവോസ് സംവാദത്തെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

എൽ ഫുട്ബേളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഗോവ എഫ്

ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് എഫ്